സിംഗപ്പൂർ തായ്ലന്റ് ഹോങ്കോങ്ങ് ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് തുടരുമെന്ന് കേന്ദ്ര ഗവൺമെന്റ്

വിദ്യാർഥിനിയുടെ ഒടുവില്ക്ത്ര പ്രിശോധനാഫലം നെഗറ്റീവെന്ന് മന്ത്രി എ

മൊയ്തീൻ

മികച്ച സഹനടനുള്ള പുരസ്ക്കാരം ബ്രാഡ് പിറ്റിന്

കിരീടം ബംഗ്ലാദേശിന് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത് മൂന്ന് വിക്കറ്റിന്

ഇന്ത്യയിൽ കൊറോണ പ്രതിരോധ നടപടികൾ കർശനമായി തുടരുകയാണ്

ചൈനയ്ക്ക് പുറത്ത് ഫിലിപ്പൈൻസിലും ഹോങ്കോങ്ങിലുമാണ് കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തത്

ഹോങ്കോങ് ചൈന എസ്സ് രാജ്യങ്ങൾക്കു പുറമേ സിംഗപ്പൂർതായ്ലൻഡ് എന്നിവിടങ്ങളിൽ ണീണ്ടുള്ള എല്ലാ വിമാനങ്ങളും പ്രത്യേക പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ഇവയിലുള്ള യാത്രക്കാരെ പ്രത്യേക എയ്റോ ബ്രിഡ്ജുകളിൽ പ്രിശോധനയ്ക്ക് വിധേയരാക്കുന്നുണ്ട്

ന്യൂസ്ഡെസ്ക് ആകാശവാണി

ചൈനീസ് പ്രസിഡന്റ് ഷീജിൻ പിങ്ങിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചതാണ് ഇക്കാര്യം

നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആരുടേയും ആരോഗ്യനിലയിൽ ആശങ്കയ്ക്ക് വകയില്ല

അതേസമയം നിലവിൽ ആശങ്കുയുടെ സ്ഥിതി ഇല്ലെങ്കിലും ജാഗ്രത ഒട്ടും കുറക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു

വ്യാപായികളും വ്യവസായികളുമായുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്നൂകുക്കേന്ദ്രമന്ത്രി പറഞ്ഞു കേന്ദ്ര ബജറ്റിന്മേൽ കൊൽക്കത്തയിൽ വ്യാപാരീക്കുള്ളുമായി നടത്തിയ സംവാദത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് വ്യവസായ മേഖലക്ക് സാങ്കേതികവിദൃ എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്ന ദൌത്യമാണ് കേന്ദ്ര ഗവൺമെന്റ് നിർവഹിക്കുന്നത് പുതിയ സംരംഭങ്ങളിലൂടെയും നൂതന ആശയങ്ങളിലൂടെയും മാത്രമേ നവ ഇന്ത്യ യാഥാർത്ഥ്യമാക്കാനാകൂ എന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞു

നദീമുഖ പ്രദേശം പ്രത്യേക സംരക്ഷിത മേഖലയാക്കാൻ നിയമം കൊണ്ടുവരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വിദഗ്ദ്ധരുമായി ആലോചിക്കും ഈ പ്രദേശത്ത് ഒരുതരത്തിലുമുള്ള പര്യവേഷണ പദ്ധതികളും അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി നേരത്തെ കാവേരി നദീമുഖ പ്രദേശത്ത് ഹൈഡ്രോ കാർബൺ പര്യവേഷണം നടത്താൻ കേന്ദ്ര ഗവൺമെന്റ് ലൈസൻസ് നൽകിയിരുന്നു ഇതേ തുടർന്ന് കർഷകരുടെ പ്രതിഷേധവും ഉയർന്നിരുന്നു

പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള അനധികൃത കടന്നുകയറ്റത്തിനെതിരെ മുംബൈയിൽ മഹാരാഷ്ട്ര നവനിർമ്മാണ സേന നടത്തിയ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

വിരകളാലുണ്ടാകുന്ന ആരോഗ്യപ്രശ്നങ്ങൾ ഇല്ലാത്താക്കാൻ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയമാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്

പരമേശ്വരന്റെ സംസ്ക്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് സ്വദേശമായ ആലപ്പുഴ മുഹമ്മയിൽ നടക്കും ഇന്നലെ രാത്രി ഭാരതീയ വിചാരകേന്ദ്രത്തിന്റെ ആസ്ഥാനമായ തിരുവനന്തപുരം സംസ്കൃതി ഭവനിൽ എത്തിച്ച മൃതദേഹത്തിൽ പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു ഭൌതികദേഹം ഇന്ന് രാവിലെ പത്ത് മണി വരെ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് ചേർത്തല മുഹമ്മയിലെ തറവാട്ടിലേക്ക് കൊണ്ടുപോകും

മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്ക്കാരം ദക്ഷിണ കൊറിയൻ ചിത്രമായ പാരസൈറ്റിലൂടെ ബോങ് ജുൻ ഹോ ഹാങ് ജിൻ വോൺ എന്നിവർ നേടി

മികച്ച അനിമേഷൻ ചിത്രത്തിനുളള പുരസ്ക്കാരം ടോയ് സ്റ്റോറി ഫോർ കരസ്ഥമാക്കി ഹെയർ ലവ് ആണ് മികച്ച ആനിമേറ്റഡ് ഷോട്ട് ഫിലിം

ജെ അബ്ദുൾ കലാമിന്റെ ജീവചരിത്രം ആസ്പദമാക്കിയ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ ഇന്നലെ പുറത്തു വിട്ടു ഇന്നലെ ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ നിർമ്മാതാവും സംവിധായകനുമായ മധുർ ഭണ്ഡാർക്കർ ജോണി മാർട്ടിൻ എന്നിവർ സംബന്ധിച്ചു

ഗൾഫിൽ നിന്നെത്തിയ നാല് യാത്രക്കാരിൽ നിന്നാണ് സ്വർണം കണ്ടെടുത്തത്

നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയെ മൂന്നു വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ബംഗ്ലാദേശ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്

നായകൻ അക്ബർ അലിയും ഓപ്പണർ പർവേസ് ഹുസൈൻ ഇമോണുമാണ് ബംഗ്ലാദേശിന്റെ വിജയശില്പികൾ

ബ്ല്റ്റ്റാദേശിനു വേണ്ടി അവിഷേക് ദാസ് മൂന്നു വിക്കറ്റും ഷൊറിഫുൾ ഇസ്താം പ്രഹ്സൻ സാക്കിബ് എന്നിവർ രണ്ടു വിക്കറ്റ് വീതവും നേടി

പേമാരിയെ തുടർന്ന് നൂറോളം വിമാന സർവ്വീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്